നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന മിസോറാം എന്നിവിടങ്ങളിൽ പ്രപചാരണം ഊർജ്ജിതം

ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഇന്ത്യ പനോരമ പ്രദർശനത്തിന് തുടക്കം

എ ഗവൺമെന്റ് സൃഷ്ടിച്ച വിശ്വാസത്തകർച്ച അതിജീവിച്ച് വിശ്വാസൃത പുനഃസ്ഥാപിക്കാൻ എൻ ഡി എ ഗവൺമെന്റിന് കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് ഭോപ്പാലിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു

സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള കേന്ദ്രീകൃത് സെംവിധാനത്തിന്റെ രൂപീകരണം അന്തിമഘട്ടത്തിലാണെന്നുമ്പ് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു മുറേനയിലെ ചമ്പൽ ക്മേച്ചലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് കിമ്മ്യൂഷ്ണർ ചന്ദ്രഭൂഷൺ കുമാറും സംഘവും ഇന്ന് വിലയിരുത്തി

മാറ്റിപാർപ്പിക്കപ്പെട്ട ബ്രൂ പട്ടികവർഗ്ഗ ക്കാർക്കായി കൻഹ്മുന്നിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആഷിഷ് കുന്ദ നിരീക്ഷിച്ചു ത്രിപുരയിലെ വിവിധ ക്യാമ്പുകളിലായിട്ടാണ് വോട്ടർമാരെ താമസിപ്പിച്ചിരിക്കുന്നത്

സഭയിൽ ശബ്ദവോട്ടുകളോടെയാണ് ഇന്നലെ രാത്രി പ്രമേയം പാസ്സാക്കിയത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് പ്രമേയം മുന്നോട്ട് വച്ചത്

എൽ എമാരാണുളഅളത്

ക്കൂൾത്യകാല സ്മമേളനത്തിന് മുന്നോടിയായാണ് പ്രമേയം പ്രീസ്ലാക്കിയത് വനിത സവംവരണ ബിൽ പാർലമെന്റിൽ തീർഷ്പായിട്ടില്ല

പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രമേയ്ക്ക്കൊണ്ടു വരുന്നതിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ നീക്ക്ത്തിൽ ബിജെപി നേതാവ് കെ

എ പ്രദീപ് പുരോഹിത് റാബി നായിക് എന്നിവർ ആശങ്ക രേഖപ്പെടുത്തി

നിലവിൽ ഇത് ആറു ലക്ഷം രൂപയാണ് ഭിന്നശേഷിക്കാരായ വൃക്തികൾക്കെതിരെയുളള അക്രമങ്ങൾ ഉൾപ്പെട്ട കേസുകൾ അതിവേഗം വിചാരണ ചെയ്യുന്ന തിന് എല്ലാ ജില്ലയിലും ഓരോ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയെ പ്രത്യേക കോടതികളായി പ്രഖ്യാപിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കാനും ഇന്നു ചേർന്ന മന്ത്രിസഭാ തീരു മാനിച്ചു

എറണാകുളം ടൌൺ ഹാളിൽ പൊതു ദർശനത്തിനു വച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആദരാംഞ്ജലികൾ അർപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ എ

ആന്റണി ഉമ്മൻച്ചാണ്ടി വി

ഖബറടക്കം നാളെ രാവിലെ ്എർണാകുളം തോട്ടത്തുംപടി പള്ളി ഖബറിസ്ഥാനിൽ നടക്കുംക്കു ഇ്ടന്നലെ പുലർച്ചെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയില്ക്ഷിര്ുന്നു അന്തൃം

ഇന്ത്യയുടെ അന്താരാഷ്ട്ര സ്വീകാര്യതയ്ക്ക് വലിയ സംഭാവനയാണ് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹം നൽകുന്നതെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വലിയ സംഖ്യയിൽ ഇന്ത്യക്കാർ രാഷ്ട്രപതിയെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും എത്തിയിരുന്നു ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയും പ്രായോഗിക വിജ്ഞാനവും പ്രയോജനപ്പെടുത്താൻ ഇന്തൃയ്ക്കുള്ള അതിയായ താല്പര്യവും ശ്രീ കോവിന്ദ് അറിയിച്ചു

ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം ഓളും ആദിത്യ സുഹാസ് ജംഭാലേ സംവിധാനം ചെയ്ത മറാത്തി ഹ്രസ്വചിത്രം ഖർവാസും ആയിരുന്നു പനോരമ വിഭാഗത്തിൽ ആദ്യം പ്രദർശിപ്പിച്ചത്

ചലച്ചിത്രേതര വിഭാഗത്തിൽ എട്ട് എണ്ണം മറാത്തിയും നാല് എണ്ണം ഇംഗ്ലീഷും മൂന്ന് എണ്ണം മലയാളവും മൂന്ന് എണ്ണം ഹിന്ദിയുമാണ് ഒഡിയ ഭോജ്പുരി ബംഗാളി ഭാഷകളിൽ ഓരോ ഹ്രസ്വചിത്രം വീതവും പ്രദർശനത്തിനുണ്ട് ഇന്ത്യൻ പനോരമാ വിഭാഗത്തിൽ മികച്ച ഇന്ത്യൻ ചിത്രങ്ങളും പ്രതിഭാധനരായ ഇന്ത്യൻ സംവിധായകരുടെ സൃഷ്ടികളും പ്രദർശനത്തിനുണ്ടാകും ഉദ്ഘാടന ചിത്രങ്ങളായ ഓള് ഖർവാസ് എന്നീ ചിത്രങ്ങളുടെ അണിയറ ശില്പികളേയും നടിനടന്മാരെയും തദവസരത്തിൽ ആദരിച്ചു ചലച്ചിത്ര ചലച്ചിത്രേതര വിഭാഗം ജൂറിമാരേയും ആദരിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്മാർട്ട് എന്ന സംഘടനയുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവസരം ലഭിക്കാത്തവരുടെ ശബ്ദമാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് ശ്രീമതി

കമ്മ്യൂണിറ്റി റേഡിയോയെ കുറിച്ചും അതിന്റെ ആവശ്യകതയെ കുറിച്ചും പരിപാടികളുടെ ഉദ്ദേശ്യത്തെ കുറിച്ചും അവബോധം സൃഷ്ടിക്കാൻ പരിശീലനം ലക്ഷ്യമിടുന്നു

നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും പരിപാടിയുടെ അൻപതാം പതിപ്പാണിത്

മൻ കി ബാത്തിലൂടെ നിരവധി പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ശ്രീ മോദി പൊതുജനങ്ങളുമായി സംവദിച്ചു വരികയാണ്

സംസ്ഥാന തലസ്ഥാനമായ ജയ്പൂരിലും ആറ് ഡിവിഷൻ ആസ്ഥാനങ്ങളിലും നടന്നു വരുന്ന യുവ ഠൌൺ ഹാൾ എന്ന പരിപാടിയിൽ യുവാക്കൾക്ക് ശ്രീ

അതേസമയം തൊഴിൽ അവസരങ്ങൾ ഉൾപ്പെടെ യുവാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബിജെപി ഗവൺമെന്റ് പരാജയപ്പെട്ടതായി കോൺഗ്രസ് വക്താവ് അജയ് മാക്കൻ ആരോപിച്ചു

നബിദിനത്തോടനുബസ്സിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

രാജ്യത്തെ മുസ്ലീം സഹോദരീ സഹോദരന്മാർക്കും മറ്റുള്ളവർക്കും ശുഭാശംസകൾ നേരുന്നതായി രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു നബിയുടെ വചനങ്ങൾ സമാധാന ത്തിനും സാഹോദര്യത്തിനും മാർഗ്ഗദീപമായിരിക്കുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

വിശദാംശങ്ങളുമായി രജ്ഞിത്

ലോകം ഇന്ന് അഭൂതപൂർവ്വമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നും സുരക്ഷ ഭദ്രത എന്നിവയിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി കിം ജോങ് യങ് അഭിപ്രായപ്പെട്ടു ഇത് തരണം ചെയ്യാൻ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണണെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദം ഇതരദേശ സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവ തടയുന്നതിൽ സാങ്കേതികവിദൃ കൃത്രിമ ബുദ്ധി എന്നിവയുടെ പ്രാധാനൃവും ചർച്ചാവിഷയമായി ലോകത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഈ വിഷയങ്ങൾ അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്യാനും സഹകരണം മെച്ചപ്പെടുത്താനും തീരുമാനമായി ന്യൂസ് ഡെസ്ക് ആകാശവാണി

എന്നാൽ ബാറ്റിംഗിനിടെ മഴ പെയ്തതോടെ ഇന്ത്യയുടെ ലക്ഷ്യം പുനർനിർണ്ണയിക്കുകയായിരുന്നു